ലോകത്ത് ഏറ്റവും കുറഞ്ഞ മരണനിരക്കുള്ള പ്രദേശമായി കേരളത്തെ നിലനിർത്തിയേ തീരൂ എന്ന് ദൃഢനിശ്ചയം ചെയ്യണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

കൈ കഴുകുമ്പോഴും മാസ്ക് ധരിക്കുമ്പോഴും ശാരീരിക അകലം പാലിക്കുമ്പോഴും സ്വന്തം ജീവൻ മാത്രമല്ല ചുറ്റുമുള്ളവരുടെ ജീവൻ കൂടിയാണ് രക്ഷിക്കുന്നതെന്നും ആ പ്രതിബദ്ധത കൈവെടിയരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കോവിഡ് നിരുപദ്രവകാരിയായ രോഗമാണെന്നും മരണനിരക്ക് ഒരു ശതമാനമേ ഉള്ളൂവെന്നും അതിനാൽ വന്നുപോയാലും കുഴപ്പമില്ലെന്നും അപകടകരമായ പ്രചരണം ഒരു വശത്ത് നടക്കുന്നുണ്ട് ഇത്തരമൊരു ധാരണ ആളുകളിൽ പ്രകടമാകുന്നത് വലിയ അപകടം ക്ഷണിച്ചുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

സംസ്ഥാനത്ത് കോവിഡ് രോഗികൾക്ക് ചികിത്സ തികച്ചും സൌജന്യമാണ് ഓണാഘോഷത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കച്ചവടക്കാരെ കർശന നിബന്ധനകൾക്ക് വിധേയമായി കച്ചവടത്തിന് അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ജഷിതകുമാരി

രോഗബാധിതർ കുറവുള്ള ഇടുക്കി വയനാട് ജില്ലകളിലും സമ്പർക്കരോഗബാധയാണ് കൂടുതൽ ന്യൂസ് ഡെസ്ക് ആകാശവാണി രദേശ കോഴിക്കോട് ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളല്ലാത്ത പ്രദേശങ്ങളിൽ ബുധനാഴ്ച വരെ ഹോട്ടലുകളിലും റസ്റ്റൊറന്റുകളിലും സാമൂഹിക അകലം പാലിച്ച് സീറ്റുകൾ ക്രമീകരിച്ച് ഭക്ഷണം ഇരുന്നുകഴിക്കാൻ അനുവദിക്കും

കണ്ടെയ്ൻമെന്റ് സോണുകളിലും ക്രിറ്റിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിലും ഈ ഇളവുകൾ ബാധകമല്ല

ദേദ മലപ്പുറം ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോൺ ഒഴികെ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലും റസ്റ്റോറന്റുകളിലും ബുധനാഴ്ച വരെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കും ദേദ കൊറോണക്കാലത്ത് ജോലി നഷ്ടപ്പെട്ട് പ്രയാസമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് താങ്ങാവാൻ കോഴിക്കോട് ജില്ലയിലെ എൻ എസ് എസ് യൂണിറ്റുകൾ സംഘടിപ്പിക്കുന്ന ഒപ്പംപദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ടി പി രാമകൃഷ്ണൻ നിർവഹിച്ചു എൻ എസ് എസ് യൂണിറ്റുകളുടെ പ്രധാന പ്രവർത്തനമേഖലയായ ദത്ത് ഗ്രാമങ്ങളിൽ ഈ ഓണക്കാലത്ത് സഹായമെത്തിക്കുന്ന പദ്ധതിയാണ് ഒപ്പം

രുദ കോവിഡ് മഹാമാരിയെ നേരിടാൻ പൊതുജനാരോഗ്യ രംഗത്ത് ഒന്നിച്ച് മുന്നേറ്റം വേണമെന്നു മന്ത്രി എം എം മണി പറഞ്ഞു കട്ടപ്പന താലൂക്കാശുപത്രിയിൽ ഓപ്പറേഷൻ തീയറ്ററിന്റെയും മോർച്ചറിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം രുര കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണായി പരിഗണിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിലെ മുഖദാറിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി ദർദ കോവിഡ് വ്യാപനം വർധിച്ച സാഹചര്യത്തിൽ അനധികൃതമായ വഴിയോരക്കച്ചവടങ്ങൾ അനുവദിക്കില്ലെന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ അറിയിച്ചു

ഈ പദ്ധതിക്ക് പ്രധാനമായും അഞ്ച് ഉപഘടകങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

എറൈസ് പദ്ധതി പ്രകാരം തൊഴിൽ വിപണിയിൽ വളരെയധികം ആവശ്യമുള്ള പത്ത് മേഖലകളിൽ യുവതീയുവാക്കൾക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും പരിശീലനം നൽകി വേഗത്തിൽ വേതനം ലഭിക്കുന്ന തൊഴിൽ ലഭ്യമാക്കും

എസ് ടി നടപ്പാക്കിയത് വഴിയുണ്ടായ നഷ്ടം നികത്തുന്നതിന് സംസ്ഥാനങ്ങൾക്കു മുന്നിൽ രണ്ട് നിർദേശങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമൻ പറഞ്ഞു

എസ് ടി കൌൺസിൽ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി

നികുതി വർധിപ്പിക്കുന്നതിനെക്കുറിച്ച് യാതൊരു തീരുമാനവും യോഗത്തിൽ എടുത്തിട്ടില്ലെന്നും ധനമന്ത്രി പറഞ്ഞു കോവിഡ് ജി എസ് ടി വരുമാനത്തെ സാരമായി ബാധിച്ചെന്നും ധനകാര്യസെക്രട്ടറി അജയ്ഭൂഷൻ പാണ്ഡെ അറിയിച്ചു ദുദ കേന്ദ്രധനമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് ജി എസ് ടി കുടിശ്ശിക ലഭിക്കുന്നത് സംബന്ധിച്ച് ഏഴ് ദിവസത്തിനകം സംസ്ഥാനങ്ങൾ നിലപാടറിയിക്കുമെന്ന് മന്ത്രി ഡോ

മറ്റ് സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുമായി ചർച്ച ചെയ്ത് യോജിച്ച തീരുമാനമെടുക്കാൻ കേരളം മുൻകയ്യെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് മൂന്ന് ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടാകും

നഷ്ടപരിഹാരത്തുക കേന്ദ്രം വായ്പയെടുത്തു നൽകുന്നതാണ് ഉചിതമെന്ന് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും യോഗത്തിൽ അഭിപ്രായപ്പെട്ടതായും ധനമന്ത്രി പറഞ്ഞു ദേദ സംസ്ഥാനത്തിന്റെ പുതിയ സ്വർണവേട്ട നയപ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി മൂന്നര കിലോയിലധികം സ്വർണം പിടികൂടിയതായി മന്ത്രി ഡോ

അനധികൃതമായി കടത്തുന്ന സ്വർണം പിടികൂടാൻ ജിഎസ് ടി വകുപ്പ് കർക്കശ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു

സിംഗപ്പൂർ ഹോങ്കോങ് ടോക്കിയോ നഗരങ്ങളുടെ മാതൃകയിൽ രാജ്യാന്തര പ്രശസ്തമായ ബിസിനസ് ഇൻഷുറൻസ് നിയമ ഓഹരി സ്ഥാപനങ്ങളുടെ മേഖലാ ആസ്ഥാനമായി കൊച്ചിയെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് കേരള സ്പെഷ്യൽ പ്രൊജക്ട്സ് നോഡൽ ഓഫീസറും വ്യവസായ ഇടനാഴി പ്രൊജക്ട് ഓഫീസറുമായ അഡീഷണൽ ചീഫ് സെക്രട്ടറി അൽക്കേഷ് കുമാർ ശർമ്മ കൊച്ചിയിൽ പറഞ്ഞു

മന്ത്രി എം എം മണി പട്ടയങ്ങൾ വിതരണം ചെയ്തു ദരദ നവകേരളീയം നിവാരണം രണ്ടാം ഘട്ട കാമ്പെയിൻ അടുത്ത മാസം ഒന്നിന് ആരംഭിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു

സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്തവർക്ക് ഇളവുകളോടെ ഒറ്റത്തവണയായി കുടിശ്ശിക അടച്ചു തീർക്കുന്നതിനാണ് നവകേരളീയം കുടിശ്ശിക നിവാരണ പദ്ധതി നടപ്പാക്കുന്നതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു